കശ്മീർ വിഘടനവാദി നേതാവ് ഷബീർ അഹമ്മദ് ഷായുടെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ട്രേറ്റ് കണ്ടുകെട്ടി

പുൽവാമ ഭീകരാക്രമണത്തിൽ ജെയ്ഷ് ഇ മുഹമ്മദിന്റെ പങ്കിന് തെളിവ് നൽകിയിട്ടും നടപടി എടുക്കാത്ത പാക് നിലപാടിൽ ഇന്ത്യ നിരാശ പ്രകടിപ്പിച്ചു

ജാഗ്രത തുടരാൻ നിർദ്ദേശം

സുൽത്താൻ അസ്തൻ ഷാ ഹോക്കി അവസാന ലീഗ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് പോളണ്ടുമായി ഏറ്റുമുട്ടും

തമിഴ്നാടിലെ മുഴുവൻ മണ്ഡലങ്ങളിലും രണ്ടാംഘട്ടത്തിലാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് അസം ബീഹാർ ഒഡീഷ ഛത്തീസ്ഗഡ് പശ്ചിമബംഗാൾ മണിപ്പൂർ ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലെ ചില മണ്ഡലങ്ങളിലേക്കും ഇതോടൊപ്പം തെരഞ്ഞെടുപ്പ് നടക്കും കേരളത്തിൽ മൂന്നാംഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ്

ഒഡീഷയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പും ഇതോടൊപ്പം നടക്കുകയാണ്

കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പത്രികാ സമർപ്പണത്തിന്റെ ആദ്യദിനം സമർപ്പിച്ചത് എട്ടു പത്രികകളാണ്

റിട്ട മേജർ ജെ

സിംഗ് സാമ്പലിലും നിയാസ് അഹമ്മദ് ദിയോറിയലും പങ്കജ് നിർണ്ജൻ ഫുൽപൂരിലും ജനവിധി തേടും നേരത്തെ കോൺഗ്ഗെസ്റ് ഗുജറാത്തിലെ ആറു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിപ്പട്ടിക് പ്രഖ്യാപിച്ചിരുന്നു

ജെ

ഗാന്ധിനഗറിൽ ജനവിധ്യൂ ത്രേടുന്ന ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ നാളെ ന്നാമനിർദ്ദേശപത്രിക സമർപ്പിക്കും സമാജ് വാദിപാർട്ടിയും ഇന്നലെ യു പിയിലെ അഞ്ചു സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്

ഒഡീഷയിലെ കോരാപുട്ടിൽ ആദ്യറാലിയെ അദ്ദേഹം അഭിസംബോധന ചെയ്തു തെലങ്കാനയിൽ മെഹബൂബ് നഗറിലും ആന്ധ്രാപ്രദേശിലെ കൂർണൂലിലുമാണ് റാലികൾ കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽഗാന്ധി ഇന്ന് ഹരിയാനയിൽ വിവിധ തെരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും

വോയിസ് തെലങ്കാനയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പ് റാലിയാണ് മെഹബൂബ് നഗറിലേത് തെലങ്കാനയിൽ തെലങ്കാന രാഷ്ട്ര സമിതിയും ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ത്രികോണ മത്സരമാണ് നടക്കുന്നത് സംസ്ഥാനത്ത് ബി ജെ പി ഒറ്റയ്ക്കാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് തെലങ്കാന രാഷ്ട്രസമിത്രിക്ക് എം ഐ എം പാർട്ടിയുടെയും കോൺഗ്രസിന് ത്രെല്ലങ്കാ്ന ജനസമിതിയുടെയും പിന്തുണയുണ്ട്

കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ ഡി കെ അരുണ ട്ടിട് ആർ എസ് നേതാവും നിലവിലെ ലോകസഭാംഗവുമായ ജിതേന്ദർ റെഡ്സിയുമാണ് ബി ജെ പിയിൽ ചേർന്നത് ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിഷ് ഷാ പശ്ചിമ ബംഗാളിലെ ആലിപൂർദ്ദാറിലും ബീഹാറിലെ ഓറംഗാബാദിലും പ്രചാരണ റാലികളിൽ പങ്കെടുക്കും കോൺഗ്രസ് പ്രസിഡന്റ് രാഹുൽഗാന്ധി ഹരിയാനയിലെ യമുനാനഗർ കുരുക്ഷേത്ര കർണാൽ എന്നിവിടങ്ങളിലെ റാലിയെ അഭിസംബോധന ചെയ്യും

കിഴക്കൻ ചമ്പാരനിൽ പ്രഭാകർ ജയ്സ്വാൾ മത്സരിക്കും മധുബനിയിലെ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും

ഇയാളുടെ ഭാര്യയുടെയും പ്രപ്പെൺമക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളാണ് പിടിച്ചെടൂത്തത് നിരോധിത തീവ്രവാദ സംഘടനയായ ജെയ്ഷ് ഇ മൊഹമ്മദ് പ്രവർത്തകൻ മുഹമ്മദ് അസ്തം വാനിയുമായി ച്ചേർന്ന് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയായിരുന്നു അഹമ്മദ് ഷാ

മൂന്ന് ഭീകരർ മേഖലയിൽ ഒളിച്ചിരിപ്പുണ്ടെന്ന് വിവരത്തെ തുടർന്ന് നടത്തിയ തെരച്ചിലിലാണ് ഏറ്റുമുട്ടലുണ്ടായത്

ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും പാക്കിസ്ഥാൻ നടപടിയെടുക്കാൻ തയ്യാറാകാത്തത് ഖേദകരമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ വക്താവ് രവീഷ്കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഭീകരവാദികൾക്ക് എതിരെ നടപടിയെടുത്തെങ്കിൽ പാക്കിസ്ഥാൻ എന്തുകൊണ്ട് തെളിവുകൾ പങ്കുവെക്കുന്നില്ല

നാളെ കൂടി തൽസ്ഥിതി തുടരുമെന്നതിനാൽ അതീവജാഗ്രത പാലിക്കണമെന്ന് ദുരന്തനിവാരണ അതോറിട്ടി മുന്നറിയിപ്പ് നൽകി

താപനില ക്രമാതീതമായി ഉയർന്നു നിൽക്കുന്നതിനാൽ ആലപ്പുഴ ജില്ലയിളെ എല്ലാ അങ്കണവാടി പ്രീ സ്കൂൾ കുട്ടികൾക്കും ഇന്നു മുതിൽ ഏപ്രിൽ ആറ് വരെ ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു

മൂന്ന് ദിവസത്തെ സന്ദർശനത്തിനിടെ ബൊളിവിയൻ പ്രസിഡന്റുമായി രാംനാഥ് കോപ്പിന്റ് പ്രതിനിധിതല ചർച്ച നടത്തും

ബന്ധം ശക്തിപ്പെടുത്താനുള്ള മാർഗ്ഗങ്ങൾ വിലയിരുത്തും സാന്താക്രൂസ് സർവ്വകലാശാല വിദ്യാർത്ഥികളുമായി രാഷ്ട്രപതി ആശയവിനിമയം നടത്തും ക്രൊയേഷ്യ സന്ദർശനം പൂർത്തിയാക്കിയാണ് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് ബൊളിവിയയിൽ എത്തിയത്

ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് മത്സരം ബംഗളൂരുവിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെതിരെ മുംബൈ ഇന്ത്യൻസ് റൺസിന് വിജയിച്ചിരുന്നു

മൂന്ന് മത്സരങ്ങൾ ജയിച്ച ഇന്ത്യ ഫൈനൽ റൌണ്ടിൽ എത്തിയിട്ടുണ്ട്

ഇന്ന് നടക്കുന്ന മറ്റ് രണ്ട് മത്സരങ്ങളിൽ ദക്ഷിണ കൊറിയ ജപ്പാനുമായും മലേഷ്യ കാനഡയുമായും ഏറ്റുമുട്ടും

പൊതു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡുബെയെ നിരീക്ഷനായി ശുപാർശ ചെയ്തത്

ഗ്രേറ്റർ നോയിഡയിൽ യമുന എക്സ്പ്രസ് വേയിൽ ട്രക്കും ബസ്സും കൂട്ടിയിടിച്ചായിരുന്നു അപകടം

നിയമം നടപ്പാക്കാൻ പരാജയപ്പെട്ടാൽ യു എൻ ഉപരോധം നേരിടേണ്ടിവരുമെന്ന് പ്രമേയം മുന്നറിയിപ്പ് നൽകുന്നു